എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസിന്റെ പോരാട്ടം ബി

സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ

എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും

പശ്ചിമബംഗാളിലാണ് ഉയർന്ന പോളിങ് രേഖപ്പെടുത്തിയത്

മധുരയിലെ മേലൂരിൽ എഐഎഡിഎംകെ എഎഠഎകെ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി പശ്ചിമബംഗാളിൽ സിപിഐഎം സ്ഥാനാർഥിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടന്നു നിരവധി സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് കേന്ദ്രമന്ത്രിമാരായ പൊൻ രാധാകൃഷ്ണൻ ജിതേന്ദ്രസിങ് ജുവൽ ഒറാം കോൺഗ്രസ് നേതാക്കളായ വീരപ്പമൊയ്ലി രാജ് ബബ്ബാർ ഡി

നേതാക്കളായ ദയാനിധി മാരൻ എ രാജ കനിമൊഴി നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറുഖ് അബ്ദുള്ള തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖർ

ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടി നേതാക്കളും വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി സ്ഥാനാർഥികളും അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഇടത് വലതു മുന്നണികളുടെയും എൻഡിഎയുടെയും ദേശീയ നേതാക്കൾ പലയിടങ്ങളിലും പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്

പരസ്യപ്രചാരണം ഞായറാഴ്ച വൈകീട്ട് അവ സാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വൈകിട്ട് സംസ്ഥാനത്തെത്തും

സ്ഥാനാർഥികളുടെ പ്രചാ രണത്തിനായി സംഘടിപ്പിക്കുന്ന മഹാസമ്മേളനം മോദി ഉദ്ഘാ ടനം ചെയ്യും

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് പാനൂരിൽ വടകര മണ്ഡലം എൽ

നാളെയും മറ്റന്നാളും മുഖ്യമന്ത്രി കണ്ണൂർ കാസർകോട് മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും രാജ്യസഭാ പ്രതിപക്ഷനേതാവ് ഗുലാംനബി ആസാദും പഞ്ചാബ് മന്ത്രി നവജോദ് സിങ് സിദ്ദുവും യു

എഫ് സ്ഥാനാർഥികളുടെ പ്രചാരണത്തിനായി ഇന്ന് കേരളത്തിലെത്തും ആലുവ ചാവക്കാട് പൊന്നാനി പട്ടാമ്പി മലപ്പുറം എന്നിവിടങ്ങ ളിൽ ഗുലാംനബി ആസാദ് പ്രചാരണയോഗങ്ങളിൽ പങ്കെടുക്കും നവജോദ് സിങ് സിദ്ദു കോഴിക്കോട് വടകര വയനാട് മണ്ഡല ങ്ങളിലെ പരിപാടികളിലാണ് പങ്കെടുക്കുക കേന്ദ്രഗവൺമെന്റ് നയങ്ങൾ രാജ്യത്തെ പിന്നോട്ടടിച്ചുവെന്നും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ മോദി ഗവൺമെന്റിനായില്ലെന്നും സി

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി ആദ്യകമ്യൂണിസ്റ്റ് ഗവൺമെന്റ് പാകിയ അടിത്തറയാണ് കേരളം ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാ വാൻ കാരണമായതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഈ ബദൽ തന്നെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്നും യെച്ചൂരി പറഞ്ഞു വയനാട് ബത്തേരിയിൽ എൽ

എഫ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാസ്ഥാപനങ്ങ ളായ സി ബി ഐ വിജിലൻസ് സി ഒ ജി ഇലക്ഷൻ കമ്മീഷൻ എന്നിവ ഇല്ലാതാക്കുകയാണ് മോദി ഗവൺമെന്റ് ചെയ്തതെന്നും ഈ ഫാസിസ്റ്റ് നയത്തിനെതിരെയാണ് ഇടതുപക്ഷം മത്സരിക്കു ന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ മെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഒന്നാണെന്ന് തെളിയിക്കാ നാണ് താൻ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ബി ജെ പി ക്കെതിരെയായിരുന്നു മത്സരിക്കേണ്ടതെന്നും യെച്ചൂരി പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സി പി

എമ്മിനെ കുറിച്ച് ഒന്നും പറയാത്തത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണെന്നും കോൺഗ്രസിന്റെ പോരാട്ടം ബി ജെ പിക്കെതി രെയാണെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു കോഴിക്കോട് പ്രസ്സ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസിന്റെ മുഖ്യശത്രു ബി ജെ പി യാണ്

എം വൃക്തമാക്കണ മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വളരെ ആത്മവിശ്വാസ ത്തോടെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും രാജ്യം ഒരുമാറ്റത്തിന് തയ്യാറെടുക്കു കയാണെന്നും കെ സി വേണുഗോ പാൽ പറഞ്ഞു ലോകത്തിലെ തന്നെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പുതിയ പദ്ധതിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ന്യായ് പദ്ധതിയെന്ന് സി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടെ വയനാടിന്റെ മുഖച്ഛായ മാറാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻമാറാത്ത സി

എമ്മിന് നില നിൽക്കാനാവില്ലെന്നും സി

ജോൺ പറഞ്ഞു

അച്ചടി മാധ്യമങ്ങളിൽ ഇക്കാലയളവിൽ പരസ്യങ്ങൾ പ്രസി ദ്ധീകരിക്കണമെങ്കിൽ സംസ്ഥാന ജില്ലാതല മീഡിയ സർട്ടിഫിക്കേ ഷൻ ആൻഡ് മോണിറ്ററിങ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങ ണം സംസ്ഥാനത്ത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നിർബന്ധ മായും ഈ നിബന്ധന പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ചെക്ക് പോസ്റ്റുകളിൽ വനിതകളെ ഉൾപ്പെടെ നിയമിച്ച് അന്യ സംസ്ഥാനങ്ങളിൽനിന്ന് വ്യാജമദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കടത്ത് തടയുന്നതിന് ശക്തമായ പരിശോധനകൾ സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ചുദിവസം ഉച്ചയ്ക്ക് രണ്ടുമുതൽ രാത്രി എട്ടുവരെ ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് ദുര ന്തനിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

തുറസ്സായ സ്ഥലങ്ങളിൽ കളിക്കുന്നതിൽ നിന്ന് കുട്ടികളെ വിലക്കണമെന്നും അതോറിറ്റി നിർദേശിച്ചു ഇടിമിന്നൽ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും മറ്റും മൈക്ക് ഉപയോഗിക്കരുതെന്നും നിർദേശമുണ്ട്

മലപ്പുറം ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്ന റിയിപ്പുണ്ട്

അന്ത്യ അത്താഴ ത്തിന് മുമ്പ് യേശു ശിഷ്യരുടെ പാദം കഴുകിയതിനെ അനുസ്മ രിച്ച് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രുഷ നടക്കുന്നുണ്ട് യേശുദേവനെ കുരിശിലേറ്റിയതിന്റെ സ്മരണയിൽ ക്രൈസ്ത വർ നാളെ ദുഖവെള്ളി ആചരിക്കും ഇതിന്റെ ഭാഗമായി പലയിട ങ്ങളിലും നാളെ കുരിശിന്റെ വഴി സംഘടിപ്പിച്ചിട്ടുണ്ട് പെസഹ ആചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മദർ ഓഫ് കത്തീഡ്രലിൽ ബിഷപ്പ് ഡോ വർഗീസ് ചക്കാലക്കൽ കാൽകഴുകൽ ശുശ്രൂഷക്ക് നേതൃത്വം നൽകും കോഴിക്കോട് രൂപതക്ക് കീഴിലെ മലാപ്പറമ്പ് ക്രിസ്തുരാജ ദേവാലയത്തിലും കണ്ണൂർ റോഡ് സിറ്റി സെന്റ്ജോസഫ് ദേവാലയത്തിലും വെള്ളിമാട് കുന്ന് ഹോളിറെഡീമർ ചർച്ചിലും വൈകീട്ട് ചടങ്ങുകൾ നടക്കും

എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും

ഇന്നലത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനെ സൺറൈസേഴ് സ് ഹൈദരാബാദ് ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു മേടമാസ വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ രാത്രി പത്തിനടയ്ക്കും പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളായ ഉദയാസ്തമന പൂജ കളഭാഭിഷേകം കലശാഭിഷേകം പുഷ്പാഭിഷേകം പടിപൂജ എന്നിവയും ഇന്നുണ്ടാകും

ആലുവയിൽ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്നു വയസ്സുകാരന്റെ നില ഗുരുതരമായി തുടരുന്നു കുട്ടിയുടെ തല ച്ചോറിനും തലയോട്ടിക്കും ഗുരുതര പരിക്കുണ്ട് കുട്ടി മരുന്നുക ളോട് പ്രതികരിക്കുന്നില്ലെന്ന് ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു കുഞ്ഞിന്റെ ദേഹത്ത് മുറിവേറ്റ പാടുകളുണ്ട് ആശുപത്രി അധി കൃതർ വിവരമറിയിച്ചതനുസരിച്ച് പൊലീസ് അന്വേഷണം തുട ങ്ങി

ജില്ലാ കളക്ടർ എ

അജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുഷ്ഠരോഗ നിർണയ ക്യാമ്പ് മോണിറ്റ റിങ് കമ്മിറ്റി മീറ്റിങിലാണ് തീരുമാനം കൊല്ലം ആലപ്പുഴ പത്ത നംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലും ഇതേ ദിവസങ്ങളിൽ സർവേ നടക്കും

ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് പാലക്കാടാണ്

കഴിഞ്ഞദിവസം അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ

തലശ്ശേരി ബ്രണ്ണൻ കോളജിൽ ഒപ്പം പഠിച്ചകാലം പിണറായി വിജയൻ അനുസ്മരിച്ചു മാധ്യമ പ്രവർത്തകനായും പൊതു പ്രവർത്തകനായും അദ്ദേഹം നൽകിയ സേവനം കേരളം മറക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു